വിവിധ ജില്ലകളിൽ അട്ടിയന്തിരുഅവലോകന യോഗങ്ങൾ ചേർന്നു

രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഗവർണറും മുഖ്യമന്ത്രിയും പെരുന്നാൾ ആശംസകൾ നേർന്നു രാജ്യരക്ഷയ്ക്കായി ജീവൻ വെടിഞ്ഞ സൈനികരുടെ കുടുംബ ങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഇന്ന് ലോക പരിസ്ഥിതി ദിനം ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന് എതി രാളി ദക്ഷിണാഫ്രിക്ക

പി ദിനേഷ് നിപ സ്ഥിരീകരണത്തെത്തുടർന്ന് രോഗപ്രതിരോധ ത്തിനും ചികിത്സയ്ക്കും കൊച്ചിയിൽ വിപുലമായ സജ്ജീ കരണങ്ങൾ ഒരുക്കിയതായി മന്ത്രി കെ

ശൈലജ അറി യിച്ചു പനി ലക്ഷണങ്ങളോടെ ഇപ്പോൾ അഞ്ചുപേരാണ് ഐസൊലേഷൻ വാർഡിൽ കഴിയുന്നത് രോഗം സ്ഥിരീ കരിച്ച കോളേജ് വിദ്യാർത്ഥിയുടെ ആരോഗൃനില തൃപ്തി കരമാണെന്ന് മന്ത്രി പറഞ്ഞു

വീടുകളിൽനിന്ന് പുറത്ത് പോക്രു തെന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥിക്ക് ആദ്യം ചികിത്സ നൽകിയ നഴ്സുമാരുൾപ്പെടെ മൂന്നുപേർക്കും യുവാവി നൊപ്പം താമസിച്ചിരുന്ന മറ്റൊരാൾക്കും പനി ലക്ഷണങ്ങൾ ഉണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഇവരുൾപ്പെടെ അഞ്ചുപേരാണ് ഇപ്പോൾ ഐസൊലേഷൻ വാർഡിലുള്ള ത് മന്ത്രി കെ

ശൈലജയുമായി ഫോണിൽ സംസാരിച്ച കേന്ദ്ര ആരോഗൃമന്ത്രി ഡോ ഹർഷ വർദ്ധൻ കേരളത്തിന് നിപാ നിയന്ത്രണത്തിന് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എയിംസിലെ കേന്ദ്രസംഘം ഇതിനകം കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് നിപാ സംബന്ധിച്ച വൃാജവാർത്തകൾ പ്രചരിപ്പിച്ച രണ്ടു പേർക്കെതിരെ കേസെടുത്ത് പൊലീസിന് കൈമാറിയിട്ടു ണ്ടെന്ന് എറണാകുളം ജില്ലാ കലക്ടർ അറിയിച്ചു

ആരോഗ്യപ്രവർത്തകർക്ക് പ്രിശീലനവും നൽകിയി ട്ടുണ്ട് ഗവൺമെന്റ് സ്ഥകാര്യ ആശുപത്രികളിൽ പ്രത്യേക പനി വാർഡുകൾ സജ്ജമാക്കി പനി ക്ലിനിക്കുകളും പ്രവർത്തനം തുടങ്ങി

കൊല്ലത്ത് ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിക ളിലും ഐസൊലേഷൻ വാർഡുകൾ ആരംഭിച്ചു നിപാ ബാധിച്ച വിദ്യാർത്ഥിയുമായി അടുത്ത് ഇടപഴകിയ മൂന്ന് വിദ്യാർത്ഥികൾ കൊല്ലം ജില്ലക്കാരാണ് കണ്ണൂർ ജില്ലയിൽ ആവശ്യമെങ്കിൽ പ്രധാന ആശുപത്രി കളിൽ ഐസൊലേഷൻ വാർഡുകൾ തുറക്കാൻ തീരുമാ നിച്ചു

നിപ സാഹചര്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് വളർത്തുമൃഗങ്ങളിലോ പക്ഷികളിലോ രോഗം ഉണ്ടാവുകയോ മനുഷ്യനിലേക്ക് പക രുകയോ ചെയ്തിട്ടില്ലെന്ന് വകുപ്പ് ഡയറക്ടർ അറിയിച്ചു എറണാകുളം തൃശൂർ ഇടുക്കി ജില്ലകളിൽ പ്രത്യേക ജാഗ്രത പുലർത്താൻ ജില്ലാ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയി ട്ടുണ്ട് പക്ഷികളിൽനിന്നും മൃഗങ്ങളിൽനിന്നും രോഗം പകരാതി രിക്കാൻ ആവശ്യമായ നടപടികൾക്ക് വെറ്ററിനറി ആന്റ് അനി മൽ സയൻസ് സർവ്വകലാശാലാ സംഘം പ്രശ്ന ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിന്റെ കൺട്രോൾ റൂം എറണാകുളത്ത് തുറക്കുന്നതിന് മന്ത്രി കെ

സംസ്ഥാനത്തു നിപ്പ സ്ഥിരീകരിച്ചതോടെ അടിയന്തിര സാഹചര്യം നേരിടാൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും ഐസലോഷൻ വാർഡ് സജ്ജീകരിച്ചതായി ജില്ലാ മെസിക്കൽ ഓഫീസർ അറിയിച്ചു

ഒരു മാസത്തെ വ്രതാനുഷ്ഠാന ത്താൽ നിർമ്മലമായ മനസ്സുമായി ഇസ്ലാമത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് പെരുന്നാൾ നമ സ്കാരത്തിന് പള്ളികളും ഈദ്ഗാഹുകളും ഒരുങ്ങി

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും ഗവർണർ പി സദാശിവവും ഉൾപ്പെടെ പ്രമുഖർ എല്ലാ മലയാളികൾക്കും ഈദുൽഫിത്വർ ആശംസ കൾ നേർന്നു ദാനധർമ്മങ്ങളുടെയും സാഹോദര്യത്തിന്റെ സഹഭാവത്തിന്റെയും വികാരങ്ങൾ ശക്തമാക്കുന്നതാണ് ഈദുൽഫിത്വർ എന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വില യിരുത്തി സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പങ്കിടലാണ് ഈദുൽഫിത്വർ ആഘോഷങ്ങളുടെ അന്തസത്തയെന്ന് ഉപ രാഷ്ട്രപതി എം

ദാനശീലത്തിന്റെയും അനുകമ്പയുടെയും ആത്മ നിയന്ത്രണത്തിന്റെയും സന്ദേശമാണ് ചെറിയ പെരുന്നാൾ നൽകുന്നതെന്ന് ഗവർണർ പി

മനുഷ്യ സ്നേഹവും സഹിഷ്ണുതയും സഹാനുഭൂതിയും പകരുന്ന താണ് ഈദുൽഫിത്വറിന്റെ സന്ദേശമെന്ന് മുഖൃമന്ത്രി പിണ റായി വിജയൻ അഭിപ്രായപ്പെട്ടു രാജ്യരക്ഷയ്ക്കായി ജീവൻ വെടിഞ്ഞ സൈനികരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് ഗ്വൺമെന്റ് തുട രുമെന്നും വിമുക്ത ഭടന്മാരുടെയും ആശ്രിതരുടെയും ആനു കൂലൃങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും മൂഖൃമന്ത്രി പിണറായി വിജ യൻ അറിയിച്ചു രാജ്യസേവനത്തിനിടെ മരണമടയുന്ന വീടി ല്ലാത്ത സൈനികരുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകാനും മാതാപിതാക്കളെ ജീവിതകാലം മുഴുവൻ സംര ക്ഷിക്കാനും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് സായുധസേനാ പതാകാദിനം ഫണ്ടിന്റെയും സൈനിക ബോർഡിന്റെയും സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശനിയാഴ്ചത്തെ ഗുരു വായൂർ ക്ഷേത്ര ദർശനത്തിന് ഒരുക്കങ്ങൾ പുരോഗമിക്കു ന്നു തൃശൂർ ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗം തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു ശ്രീവത്സം ഗസ്റ്റ്ഹൌസ് ക്ഷേത്രറോഡുകൾ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡ് എന്നിവിടങ്ങളിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെ ടുത്തും മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്ത് സ്കൂളു കൾ നാളെ തുറക്കും പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാ നതല ഉദ്ഘാടനം തൃശൂർ ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻ്ററി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവ്വഹിക്കും ഇന്ന് ലോക പരിസ്ഥിതി ദിനം കാലാവസ്ഥാ വ്യതിയാനം മുൻകാലങ്ങളെ അപേക്ഷിച്ച് പലമടങ്ങ് രൂക്ഷമായ സാഹ ചരൃത്തിലാണ് ഇത്തവണ ലോക പരിസ്ഥിതി ദിനമെത്തു ന്നത് വായുമലിനീകരണത്തെ ചെറുത്തു തോൽപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതിദിന സന്ദേശം ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ പരി പാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന മലിനീകരണ നിയ ന്ത്രണബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടികളുടെ ഉദ്ഘാടനവും മികച്ച പരി സ്ഥിതി സംരക്ഷണ പ്രവൃത്തി പുരസ്കാരവും വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവ്വ ഹിക്കും ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സെക്ര ട്ടറിയേറ്റ് ജീവനക്കാർക്ക് ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു

സംസ്ഥാനത്ത് കാലവർഷം മറ്റന്നാൾ ആരംഭിച്ചേക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ന്യൂഡൽഹിയിൽ അറിയിച്ചു

ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ്ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന് ലണ്ടനിലെ സതാംപ്ടൺ സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാ ളി വൈകിട്ട് മൂന്നിന് കളി ആരംഭിക്കും

ഈ വർഷം എല്ലാ ജില്ലകളിലും ഹോർട്ടികോർപ്പ് കൂടു തൽ വിപണനകേന്ദ്രങ്ങൾ തുറക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ അറിയിച്ചു

കാലവർഷത്തിന് മുന്നോടിയായ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി അണക്കെട്ടിൽ സന്ദർശനം നടത്തി

കൊച്ചി പാലാരിവട്ടം മേൽപ്പാലത്തിൽ ഇപ്പോൾ നടത്തുന്ന അറ്റകുറ്റപ്പണികൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യി ല്ലെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചു ഇത് സംബന്ധിച്ച് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച പ്രഥമ വിവര റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

ഹരിതകേരള മിഷന്റെ പച്ചത്തുരുത്തു പദ്ധതിയുടെ പാലക്കാട് ജില്ലാതല ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ പാലക്കാട് ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു

ഇടുക്കി ഉടുമ്പൻചോലയിൽ വീണ്ടും സി

എം കോൺഗ്രസ് സംഘർഷം ഇരു വിഭാഗത്തെയും പ്രവർത്തകർക്ക് പരിക്കേറ്റു